ശക്തമായ നാവികസേന രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിയാണെന്നും രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ സേന്യുടെ ്പങ്ക് വലുതാ ണെന്നും നാവികസേനാമേധാവി അഡ്മിറൽ കരൺബീർസിംഗ് കേരളത്തിലെ ക്യാമ്പസുകൾ കണ്ണൂർ മോഡലാക്കാൻ സിപി ഐഎം ശ്രമിക്കുകയാണെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പളളി രാമചന്ദ്രൻ മരട് അനധികൃത ഫ്ളാറ്റുകൾ പൊളിക്കണമെന്ന വിധിക്കെതിരെ നിർമാതാക്കൾ സുപ്രീംകോ്ടതിയിൽ തിരുത്തൽഹർജി നൽകി കാഞ്ഞങ്ങാട് സ്ംസ്ഥാന സ്കൂൾകലോത്സവത്തിൽ കോഴിക്കോട്ട് മുന്നേറ്റം തുടരുന്നു ഐ ലീഗ് ഫുട്ബോളിൽ കോഴിക്കോട്ട് ഗോകുലംകേരള നെരോക്ക് എഫ്സി യെ നേരിടും ശക്തമായ നാവികസേന രാഷട്രത്തിന്റെ അഭിവൃദ്ധി യാണെന്നും രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ നാവിക സേനയുടെ പങ്ക് വലുതാണെന്നും നാവിക സേനാ മേധാവി അഡ്മിറൽ കരൺ ബീർ സിംഗ് പറഞ്ഞു ഓരോ കേഡറ്റും സുരക്ഷയും ക്ഷേമവും ബഹുമാനവും നിലനിർത്തി സേവനം അനുഷ്ഠിക്കണമെന്നും അദ്ദേഹം നിർദേശിച്ചു ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പ്രസിഡന്റ്സ് ഗോൾഡ് മെഡലിന് മിഡ് ഷിപ്പ്മാൻ ആദിത്യ ജെയിൻ അർഹനായി കേരളത്തിലെ ക്യാമ്പസുകൾ കണ്ണൂർ മോഡലാക്കാൻ സിപിഐഎം ശ്രമിക്കുകയാണെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ല പ്പളളി രാമചന്ദ്രൻ കൊച്ചിയിൽ കുറ്റപ്പെടുത്തി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എസ്എഫ്ഐയുടെ ആൾകൂട്ട അക്രമമാണെന്നും സംസ്ഥാ നത്തെ ക്യാമ്പസുകളിൽ ചിന്തിക്കാൻ കഴിയാത്ത് കാര്യങ്ങളാണ് അരങ്ങേറുന്നതെന്നും യൂണിവേഴ്സിറ്റി കോളജിലടക്കം സിപി ഐഎം കലാപങ്ങൾക്ക് ഒത്താശ ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജിലെ സംഘർഷം ഒഴിവാക്കാൻ പ്രിൻസിപ്പൽ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചു തിങ്കളാഴ്ച ചേരുന്ന ്യോഗം കോളജിൽ സമാധാനം പുനസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ചുണ്ടായ വിദ്യാർത്ഥി സംഘ ട്ടനത്തിൽ എസ്എഫ്ഐ കെഎസ്യു പ്രവർത്തകർക്കും പൊലീസിനും പരിക്കേറ്റിരുന്നു

ഇന്നലെ വൈകിട്ടുണ്ടായ സംഭവങ്ങ ളുടെ പേരിലും കോളജ് ഹോസ്റ്റലിൽ കെഎസ് യു പ്രവർത്ത കരെ ആക്രമിച്ച സംഭവത്തിലുമാണ് നടപടി വധശ്രമത്തിനാണ് കേസ് പൊലീസിനെ ആക്രമിച്ചതിന് കെഎസ് യു പ്രവർത്തകർക്കെ തിരെ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്

ഫ്ളാറ്റ് നിർമാതാക്കളായ ആൽഫ വെഞ്ചേഴ്സും ജെയിൻ ഹൌസിംഗുമാണ് തിരുത്തൽഹർജി നൽകിയത് ഫ്ളാറ്റുകൾ പൊളിക്കണമെന്ന ഉത്തരവ് നീതിയുക്തമല്ലെന്നും പൊളിക്കൽ ദേശീയ നഷ്ടമാണെന്നും ഹർജിയിൽ പറയുന്നു

നേരത്തെ ഫ്ളാറ്റ് ഉടമകളും തിരുത്തൽഹർജി നൽകിയിരു ന്നു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി എ കെ ബാലന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് തിരുവനന്തപുരത്ത് യോഗം ചേരും സിനിമാ ടിക്കറ്റിന്റെ് അധിക നികുതി ലൊക്കേ ഷനുകളിലെ ലഹരിമരുന്ന് ഉപ്പയോഗം തുടങ്ങി വിവിധ പ്രശ്ന ങ്ങൾ സിനിമാരംഗത്തെ സംഘടനകളുമായി മന്ത്രി ചർച്ച ചെയ്യും കണ്ണൂർ പയ്യാവൂർ പഞ്ചായത്തിലെ ഒരു ഹൈസ്കൂളിൽ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കായികാധ്യാപ്കനെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു അയൽവാസിയുടെ വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്

സ്കൂളിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ അധികൃതർ നടത്തിയ കൌൺസിലിങ്ങിനിടെയാണ് പീഡനകാര്യം വെളിപ്പെടുത്തിയത് എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ എട്ട് വിദ്യാർത്ഥിനികളാണ് കായികാധ്യാപകനെതിരെ മൊഴി നൽകിയത് മഹാരാഷ്ട്രയിലെ ദുലൈയിലെ വിഞ്ചുർ ഗ്രാമത്തിൽ പാല ത്തിൽ നിന്നും വാൻ മറിഞ്ഞ് ഏഴുപേർ മരിച്ചു

സോളാപൂർ റോഡിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാ യിരുന്നു അപകടം മഹാരാഷ്ട്രയിൽ ശിവസേന എൻസിപി കോൺഗ്രസ് സഖ്യ ഗവൺമെന്റ് ഉച്ചകഴിഞ്ഞ് വിശ്വാസവോട്ട് തേടും രണ്ടു മണി ക്കാണ് വിശ്വാസപ്രമേയം വോട്ടിനിടുന്നത് പ്രോട്ടം സ്പീക്കർ ദിലീപ് വാത്സെ പ്രമേയവോട്ടെടുപ്പ് നിയന്ത്രിക്കും

സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടത്താനാണ് തീരുമാനം കോൺഗ്രസിനായിരിക്കും സ്പീക്കർ സ്ഥാനം

രാവിലെ ഏഴ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെയാണ് പോളിംഗ് കാഞ്ഞങ്ങാട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴി ക്കോട് കണ്ണൂർ പാലക്കാട് ജില്ലകൾ തമ്മിൽ കടുത്ത പോരാട്ടം

ഐ ലീഗിൽ കിരീടമോഹവുമായി ഗോകുലം കേരള എഫ് സി ഇന്ന് മത്സരത്തിനിറങ്ങും

നെരോക്ക എ ഫ് സിയാണ് എതിരാളികൾ വനിതകൾക്ക് സൌജന്യമായി കളി കാണാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് ഐഎസ്എൽ ഫുട്ബോളിൽ ചെന്നൈൻ എഫ്സിയുടെ മോശം പ്രകടനത്തെ തുടർന്ന് പരിശീലകൻ ജോൺഗ്രിഗറി സ്ഥാനം ഒഴിഞ്ഞു ടീം മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഗ്രിഗറി സ്ഥാനം ഒഴിഞ്ഞത് ഈ സീസണിൽ കളിച്ച ആറു മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് ചെന്നെയിൻ എഫ്സി ക്ക് ജയിക്കാനായത് ദേശീയ സീനിയർ വനിതാ ബോക്സിംഗ് ചാമ്പൃൻഷിപ്പ് മറ്റന്നാൾ കണ്ണൂരിലാരംഭിക്കും ഡ്വിസംബർ എട്ടുവരെ മുണ്ട യാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന ചാമ്പ്യൻഷിപ്പിൽ വിദേശ താരങ്ങൾ ഉൾപ്പെടെ മുന്നൂറോളം പേർ പങ്കെടുക്കും ചാമ്പ്യൻഷിപ്പിന് മുന്നോട്ടിയായി വൈകീട്ട് കണ്ണൂരിൽ വിളം ബര ഘോഷയാത്ര സംഘട്ടിപ്പിച്ചിട്ടുണ്ട്

കഴിഞ്ഞവർഷത്തെ അപേക്ഷിച്ച് ഇരട്ടി വരുമാനമാണ് ഘഭിച്ചത്

തുടർന്ന് ചരിത്രസെമിനാറിൽ സാമ്രാജ്യത്യ വിരുദ്ധ പോരാട്ടങ്ങളും പഴശ്ശിരാജയും എന്ന വിഷയത്തിൽ ചരിത്രകാരൻ ഡോകെ

വിജയരാഘവനും ചെറുത്ത് നിൽപ്പ് സമരങ്ങളുടെ വർത്തമാനം എന്ന വിഷയത്തിൽ ഡോ കെ

ജയശ്രീയും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു

പുലർച്ചെ രണ്ടരയോടെ പെരി ഞ്ഞനത്ത് അജ്ഞാതവാഹനം സ്കൂട്ടറിലിടിച്ച് ആലുവ സ്വദേ ശികളായ ശ്രീമോൻ ദിൽജിത്ത് എന്നിവരാണ് മരിച്ചത് വാണിയംപാറയിൽ ദേശീയപാതയിൽ കാർ നിയന്ത്രണംവിട്ട് കുളത്തിലേക്ക് മറിഞ്ഞ് തൃപ്പുണിത്തുറയിലെ ദമ്പതികളാണ് മരി ച്ചത് ഏലൂർ സ്വദേശികളായ ഷീല ഭർത്താവ് ഡെന്നി ജോർജ്ജ് എന്നിവർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽ പെട്ടത്

ഔപചാരിക അ റസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജ രാക്കി പോലീസ് കസ്റ്റഡിയിൽ ആശ്യപ്പെടും അതേസമയം ടോം തോമസ് കേസിൽ രണ്ടാം പ്രതി എം എസ് മാത്യുവിനെ ഇന്ന് താമരശ്ശേരി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും കൊല്ലം അഞ്ചൽ ഈസ്റ്റ് സ്കൂൾ ഗ്രൌണ്ടിൽ അഭ്യാസപ്രക ടനം നടത്തിയ രണ്ടു ടൂറിസ്റ്റ് ബസ്സുകളും പിടിച്ചെടുത്തു